കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നതായി ഇന്ത്യ

ഗവർണർ ജഗദീപ് ധങ്കർ

ഭാരതി ഉത്സവത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തെ വനിതകൾ ഇന്ന് തല ഉയർത്തിപ്പിടിച്ചാണ് നടക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൌരാണികതയുടെയും ആധുനികതയുടെയും ആരോഗ്യകരമായ സന്തുലനത്തിലാണ് സുബ്രഹ്മണ്യ ഭാരതി വിശ്വസിച്ചിരുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു

ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത് മിർസിയോയെവുമായുള്ള വെർച്ചൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ രാജൃത്തിന്റെ വികസന മുൻഗണനകൾ അനുസരിച്ച് ഇന്തൃ തങ്ങളുടെ വൈദഗ്ധൃവും അനുഭവവും പങ്കിടാൻ തയ്യാറാണെന്നും ശ്രീ നരേന്ദ്ര മോദി പറഞ്ഞു ഇന്ത്യയും ഒരു മധ്യേഷ്യൻ രാജ്യവും തമ്മിലുള്ള ആദ്യത്തെ ഉഭയകക്ഷി വെർച്ചൽ ഉച്ചകോടിയാണ് ഇന്ന് നടന്നത് ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സാമ്പത്തിക പങ്കാളിത്തവും കാലങ്ങളായി ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൌകര്യങ്ങൾ ഐടി വിദ്യാഭ്യാസം ആരോഗ്യം പരിശീലനം ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയ്ക്ക് വലിയ സാധ്യതകളുണ്ട് ഇത് ഉസ്ബെക്കിസ്ഥാന് പ്രയോജനപ്പെടുത്താനാകും കാർഷികമേഖലയിൽ സംയുക്ത പ്രവർത്തക സമിതി സ്ഥാപിക്കുന്നത് സുപ്രധാനവും ക്രിയാത്മകവുമായ നടപടിയാണെന്നും ശ്രീ മോദി പറഞ്ഞു തീവ്രവാദം മതമൌലികവാദം വിഘടനവാദം എന്നിവയെക്കുറിച്ച് ഇന്ത്യയ്ക്കും ഉസ്ബെക്കിസ്ഥാനും സമാനമായ ആശങ്കകളുണ്ട് സുരക്ഷാകാര്യങ്ങളി ലെ പങ്കാളിത്തം ഉഭയകക്ഷി ബന്ധത്തിന്റെ ശക്തമായ സ്തംഭമായി മാറുകയാണ് ബഹിരാകാശ ആണവോർജമേഖലകളിലും സഹകരണം ശക്തമാക്കി വരുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോവിഡ് പകർച്ചവ്യാധിയുടെ സമയത്ത് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് മിർസിയോയേീപ്പ് നന്ദി പറഞ്ഞു പരസ്പര താൽപ്പര്യമുള്ള പ്രാദേശിക ആഗ്ഗോള് പ്രശ്നങ്ങളെക്കുറിച്ചും ഇരു ഭരണാധികാരികളും ചർച്ച നട്ടത്തി

ചന്തകളിലെ കെട്ടുപാടുകളിൽ നിന്ന് കർഷകരെ മോചിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു അവരുടെ ഉൽപന്നങ്ങൾ എവിടെയും ആർക്കും മികച്ച വിലക്ക് വിൽക്കാൻ കഴിയുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു എതിർപ്പുകളുള്ള വൃവസ്ഥകളെക്കുറിച്ച് തുറന്ന മനസ്സോടെയുള്ള ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം ആവർത്തിച്ചു

ജെ

സംസ്ഥാന പ്രഭാരിമാരുമായും പ്രസിഡന്റുമായും പാർട്ടി ദേശീയ നേതൃത്വം നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് തീരുമാനം

എം സ്വാനിധി പദ്ധതിയിൻ കീഴിൽ മറ്റൊരു പദ്ധതിക്ക് കൂടി ഇന്ന് തുടക്കമായി പദ്ധതിയിലെ ഗ്ഗൂർന്ഭോക്താക്കളുടെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന പദ്ധതിക്ക് കേന്ദ്ര നഗരകാര്യ സെക്രട്ടറി ദുർഗ്ഗാ ശങ്കർ മിശ്രയാണ് തുടക്കം കുറിച്ചത്

കാലാവസ്ഥാ വൃതിയാനത്തിന് ഇന്ത്യ കാരണമാകുന്നില്ലെങ്കിലും ഉത്തരവാദിത്വമുള്ള ആഗോള ശക്തി എന്ന നിലയിൽ അതിനെതിരെ പൊരുതാൻ ഇന്ത്യ അണിചേരുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ഫിക്കിയുടെ വിർച്ചൽ വാർഷിക എക്സ്പോയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

ജെ പി അധ്യക്ഷൻ ജെ പി നഡ്റ്റയുടെ വാഹനവ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണം നിർഭാഗ്യകരമാണെന്ന് പ്രശ്ചിമ ബംഗാൾ ഗവർണർ ജഗദീപ് ധങ്കർ കൊൽക്കത്തയിലെ സ്ക്ടിപ്പങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രസ്താവന ശരിയായില്ലെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പ്പറഞ്ഞു ഭരണഘടന പിന്തുടരേണ്ട ആളാണ് മുഖ്യമന്ത്രി അതിന്റെ പാതകളിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയില്ല സംസ്ഥാനത്തെ ക്രമസമാധാനനില വളരെക്കാലമായി വഷളായിക്കൊണ്ടിരിക്കുകയ്ാണെന്നും ശ്രീ ധങ്കർ പറഞ്ഞു

മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉൾപ്പെടെയുള്ള നേതാക്കൾ അദ്ദേഹത്തിന് ആദരമർപ്പിച്ചു രാഷ്ട്രപതി ഭവനിൽ ശ്രീ പ്രണബ് മുഖർജിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ രാഷ്ട്രപതിയും ഉദ്യോഗസ്ഥരും പുഷ്പാർച്ചന നടത്തി

പാർലമെന്റ് മന്ദിരത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ സഭാ അധ്യക്ഷൻമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും

അത്തരത്തിൽ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോ സന്ദേശം വൃാജമാണെന്നും പി ഐ

വ്യക്തമാക്കി

നീതിന്യായ വകുപ്പും ബിഎസ്എൻഎല്ലും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്

നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉച്ചകോടി ഡയക്ടർ ജനറൽ രാകേഷ് ആസ്താന ഇന്ത്യയെ പ്രതിനിധീകരിച്ചു